പ്രചാരണം ശക്തമാക്കി മുന്നണികൾ

പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു

ജെ

ദേശീയ അധ്യക്ഷൻ ജെ

നിദ്ദു പ്രചാരണത്തിനായി നാളെ സംസ്ഥാനത്തെത്തും പ ഇരട്ടവോട്ട് സംബന്ധിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ന് ചെന്നിത്തലയുടെ ഹിർജിയിൽ ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് ക്യ്മീഷനോട് വിശദീകരണം തേടി

ഏപ്രിൽ ഒന്ന് മുതൽ വാക്സിൻ നൽകുന്നതിന് വിപുലമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതായി ആരോഗ്യവകുപ്പ്

സംസ്ഥാന നേതാക്കൾക്ക് പുറമേ ദേശീയ നേതാക്കളെയും സംസ്ഥാനത്ത് എത്തിച്ച് പ്രചാരണത്തിന് കരുത്തേകുകയാണ് മുന്നണികൾ

ശൈലജയുമുൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണയോഗങ്ങളിൽ പങ്കെടുത്തു

ജെ പി ദേശീയ അദ്ധ്യക്ഷൻ ജെ പി നദ്ദ നാളെ കണ്ണൂരിൽ പ്രചാരണത്തിനെത്തും രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും സംസ്ഥാനത്ത് പ്രചാരണം തുടരുകയാണ്

മതനിരപേക്ഷത തകർക്കാനുള്ള നീക്കങ്ങൾ രാജ്യത്ത് നടന്നു വരുന്നതായും കേരളത്തിലെ എൽഡിഎഫ് സർക്കാർ മതനിരപേക്ഷതയ്ക്കു വേണ്ടി ശക്തമായി നിലകൊണ്ടതായും മുഖ്യമന്ത്രി നേമത്ത് പറഞ്ഞു

റിസർവ് ബാങ്ക് അനുമതിയോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമായ കിഫ്ബിയെ തകർക്കാൻ ശ്രമം നടക്കുന്നതായും ഫെഡറൽ സംവിധാനങ്ങളെ മാനിക്കാൻ പഠിക്കണമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി

രാവിലെ കോട്ടമൈതാനത്തു തുറന്ന വാഹനത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത ശേഷം ആരംഭിച്ച അദ്ദേഹത്തിന്റെ റോഡ് ഷോ തൃത്താലയിൽ സമാപിച്ചു ഇടതുപക്ഷത്തിന്റെയും ബി ജെ

എഫ് വിജയിക്കണമെന്നും അദ്ദേഹം തൃത്താലയിൽ പറഞ്ഞു

ജെ പി ദേശീയ അധ്യക്ഷൻ ജെ

ഡി എ

ജെ

സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനു വേണ്ടി കോന്നിയിൽ അദ്ദേഹം പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കും

ഓരോ നിയോജക മണ്ഡലങ്ങളിലും ആയിരം മുതൽ പതിനായിരുട് വരെ വ്യാജ വോട്ടർമാരുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു മഷി മായ്ക്കാനുള്ള സാമഗ്രികൾ വിതരണ്ട് ച്ചയ്യുന്നതായും അദ്ദേഹം കൊച്ചിയിൽ ആരോപണം ഉന്നയിച്ചു

ഡി എഫ് സ്ഥാനാർത്ഥിയും സിറ്റിങ്ങ് എം എൽ

പെരുമ്പാവൂർ രായമംഗലത്തും മൂവാറ്റുപുഴ മാറാടിയിലും എം

ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണിതെന്നും അദ്ദേഹം പറഞ്ഞു

വേനൽ ചൂടിനെക്കാളും കാഠിന്യത്തിലാണ് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ചൂട് കൂടുതൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ആർ

പോളിംഗ് ഡ്യൂട്ടിയില്ലാത്ത അവശ്യ സർവീസിൽ ഉൾപ്പെടുന്നവർക്കാണ് സെന്ററുകൾ സജ്ജമാക്കുന്നത്

പോസ്റ്ററിന്റെ ഉറവിടം അന്വേഷിച്ച് വരികയാണെന്നും ജനങ്ങൾക്ക് ഭയപ്പാടില്ലാതെ വോട്ടുചെയ്യാനുള്ള സുരക്ഷ ഒരുക്കുമെന്നും കളക്ടർ പറഞ്ഞു

റിട്ട ജസ്റ്റിസ് വി

ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടതായാണ് സൂചന

കിഫ്ബി ആസ്ഥാനത്ത് നടന്ന ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിനെതിരെയാണ് ധനമന്ത്രി രംഗത്ത് വന്നത് സംസ്ഥാനത്തിന്റെ വികസനം അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു

ഐ

ഒരു വ്യക്തിയുടെ വിശ്വാസം സംരക്ഷിക്കാൻ പാർട്ടി പ്രതിജ്ഞാബ്ബദ്ധമാണെന്നും ശബരിമലയിൽ വിശ്വാസികൾ മാപ്പു തരൂില്ല തീരുമാനമെടുക്കേണ്ടത് ജന്ങ്ങളാണെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു കേന്ദ്ര സ്ർക്കാർ തെരഞ്ഞെടുപ്പ് നടപടികളിൽ ഇടപെട്ടതിനെ തുടർന്നാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നീട്ടി വെച്ചതെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു

കേരളത്തിലെ രോഗബാധിതരുടെ എണ്ണം തുടർച്ചയായി കുറഞ്ഞു വരികയാണ്

സംസ്ഥാനത്ത് ഇന്ന് പുതിയ ഹോട്ട്സ്പോട്ടുകൾ ഇല്ല

വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നതിന് മുമ്പായി എല്ലാവരും വാക്സിൻ സ്വീകരിച്ചിരിക്കണ്ട്രമെന്നും അരോഗ്യവകുപ്പ് അഭ്യർത്ഥിച്ചു കേന്ദ്ര സംസ്ഥാന സ്റ്റ്ക്കാർ ആശുപത്രികൾ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള സ്കാര്യ ആശുപത്രികൾ പൊതുകെട്ടിടങ്ങൾ എന്നിവിടങ്ങളിൽ വാക്സിനേഷൻ സൌകര്യം ലഭ്യമാണ്

മറ്റ് സംസ്ഥാനങ്ങളിൽ കോവിഡ് കേസുകൾ വർധിക്കുന്ന സാഹചര്യത്തിൽ ഈ വിഭാഗത്തിലെ എല്ലാവരും കോവിഡ് വാക്സിൻ സ്വീകരിക്കേണ്ടത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുവാൻ അത്യാവശ്യമാണെന്നും ആരോഗ്യ വകുപ്പ് അറിയിച്ചയ സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡ് വിലയിരുത്തി

ജലദൌർലഭൃം വർദ്ധിച്ചതോടെ ശക്തമായ വേനൽച്ചൂടിൽ ഏലം കൃഷി കരിഞ്ഞുണങ്ങുകയാണ്

സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ നടന്ന ചടങ്ങിൽ ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ് സത്യവാചകും പൊല്ലികൊടുത്തു

മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി

സംസ്ഥാനത്ത് സ്ർണ വില കുറഞ്ഞു

വരെ വേഗതയിൽ വീശിയടിക്കാവുന്ന കാറ്റിനും സാധൃതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി മലയോര മേഖലകളിൽ ഇടിമിന്നൽ സജീവമാകാൻ സാധൃതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്